അർഹരായ ഗുണഭോക്താക്കൾക്ക് പ്രപ്തിവർഷം ആറായിരം രൂപയുടെ സാമ്പത്തിക സഹായമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയിലൂടെ നൽകി വരുന്നത് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും ചടങ്ങിൽ പങ്കെടുക്കും

നിലവിൽ ഇത് ആറ് മുതൽ എട്ട് ആഴ്ചയ്ക്കിടയിൽ എടുക്കണമെന്നായിരുന്നു നിർദേശം

കോവിഡ് മുക്തരായവർ ആറ് മാസത്തിന് ശേഷമേ വാക്സിൻ എടുക്കേണ്ടതുള്ളൂ പ്ലാസ്മ ചികിത്സയ്ക്ക് വിധേയരാവർ പന്ത്രണ്ട് ആഴ്ചയ്ക്ക് ശേഷം വാക്സിൻ സ്വീകരിച്ചാൽ മതി ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നവർ രോഗ മുക്തി നേടി നാല് മുതൽ എട്ട് ആഴ്ചയ്ക്കുള്ളിൽ വാക്സിൻ സ്വീകരിച്ചാൽ മതിയെന്നും വിദഗ്ധ സമിതി നിർദേശിച്ചു ഗർഭിണികൾക്ക് ആവശ്യമെങ്കിൽ വാക്സിൻ എടുക്കാം

കോവാക്സിൻ നിർമാണത്തിനുള്ള ലൈസൻസ് നൽകുന്നതിലും വാക്സിൻ നിർമാണത്തിനുള്ള സാങ്കേതികവിദ്യ കൈമാറ്റത്തിനുള്ള നൽകുന്നതിലും കാലതാമസം വരുത്തിയിട്ടില്ല അനുമതി വാക്സിന്റെ ആഭ്യന്തര ഉല്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ വാക്സിൻ നിർമാതാക്കളുമായി സാങ്കേതിക കൈമാറ്റ കരാറുകളിൽ ഏർപ്പെടാൻ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും കമ്പനികളെയും സ്വകാര്യ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു

അതേസമയം രാജ്യത്ത് കോവിഡ് വ്യാപനം തുടരുകയാണ് വിശദാംശങ്ങളുമായി അമൃത

ജൂലൈ മുതൽ സ്പുട്നിക് വാക്സിൻ ഇന്ത്യയിൽ തദ്ദേശീയമായി ഉല്പാദിപ്പിക്കുമെന്ന് നിതി ആയോഗ് അംഗം ഡോ

കോവിഡ് മഹാമാരിയെ നേരിടാൻ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് സഹായമെത്തുകയാണ് ഇറ്റലിയിൽന ന്ട്രിന്നും കഴിഞ്ഞ ദിവസം സഹായമെത്തിയിരുന്നു

ജയ്ശങ്കർ യു എസ്

ആരോഗ്യ രംഗത്ത് ആഗോളതലത്തിൽ ഇന്ത്യ അമേരിക്ക സഹകരണം ഊർജ്ജിതമാക്കേണ്ടതിന്റെ ആവശ്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ഓക്സിജൻ വാക്സിൻ മരുന്നുകൾ എന്നിവയുടെ വിതരണം കാരൃക്ഷമമാക്കേണ്ടതിന്റെ പ്രാധാന്യവും ശ്രീ ജയ്ശങ്കർ ചർച്ച ചെയ്തു

മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ രോഗബധിതരുള്ളത്

കോവിഡ് മൂലം അനാഥരായ കുട്ടികൾക്കായി മധ്യപ്രദേശ് സർക്കാർ സൌജന്യ വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപിച്ചു

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ന്യൂനമർദം ചുഴലിക്കാറ്റായി മാറുകയും കേരള തീരത്തിനടുത്ത് കൂടി കടന്ന് പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്

ആലപ്പുഴയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും നിരവധി വീടുകളിൽ വെള്ളം കടൽക്ഷോഭം രൂക്ഷമായ സ്ഥലങ്ങളിൽ കയറി

തിരുവനന്തപുരം പൊഴിയൂരിലും കടലേറ്റം തുടരുകയാണ്

കോവിഡ് പ്രതിരോധ വാക്സിൻ എടുത്തവർ ഇനി രാജ്യത്ത് മാസ്ക്ക് ധരിക്കേണ്ട സാമൂഹ്യ അകല നിർദ്ദേശങ്ങളിലും ഇളവ് വരുത്തിയിട്ടുണ്ട് അമേരിക്കയുടെ കോവിഡ് പോരാട്ടത്തിലെ നിർണായക ദിനമാണിതെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വിലയിരുത്തി